വോട്ടെടുപ്പ്

മുതൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങും

മുൻനിര പാർട്ടികളുടെ ദേശീയ നേതാക്കളെല്ലാം പ്രചാരണത്തിനായി കേരളത്തിൽ എത്തി

എഫിന്റെ പ്രചാരണ പരിപാടികളിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി തൃശൂരിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ജയറാം രമേശ് ഇന്ന് പ്രചാരണത്തിനായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പ്രചാരണ തിരക്കിലാണ്

ഡി എ യുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും കോന്നിയിലും തിരുവനന്തപുരത്തുമാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പ്പങ്കെടുക്കുന്നത്

തെരഞ്ഞെടുപ്പിമ്പുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തെർഉണ്ഞടുപ്പ് കമ്മീഷൻ

പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ജനവിധി തേടുന്ന നന്ദിഗ്രാം ആണ് രണ്ടാം ഘട്ടത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മണ്ഡലം തൃണമൂലും ബി ജെ പിയും അഭിമാന പോരാട്ടമായാണ് നന്ദിഗ്രാം തെരഞ്ഞെടുപ്പിനെ കാണുന്നത്

കേന്ദ്ര സേനയെ വലിയതോതിൽ വിനൃസിക്കുകയും അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് അസമിൽ കനത്ത മഴയും മോശം കാലാവസ്ഥയും അനുഭവപ്പെടുന്നത് വോട്ടിങ്ങിനെ ബാധിക്കുമൊയെന്ന ആശങ്ക നിലനിൽക്കുകയാണ്

ഡി എ യും കോൺഗ്രസും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടത്തിനാണ് രണ്ടാം ഘട്ടത്തിൽ അസം സാക്ഷിയാവുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

കടുത്ത ചൂടിനെ അവഗണിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുന്നത് പ്രധാനമന്ത്രിയുടെ തിരുപ്പൂർ സന്ദർശനം എൻ ഡിഎ ക്യാമ്പിനെ ആവേശത്തിലാക്കി

നേതാവ് എം

കേരളത്തിനൊപ്പം അടുത്ത മാസം ആറിനാണ് തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വോട്ടെ ടുപ്പ്

രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നേരിട്ട് സംഭാവന നൽകുന്നതിന് പകരമുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിക്കുന്ന പണം സംബന്ധിച്ച് സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ സംവിധാനം

ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് പിന്നീട് വേറെ രജിസ്ട്രേഷൻ ആവശൃമില്ല

രാജ്യത്ത് വിമാന സർവ്വീസുകൾ ഇല്ലാത്തതോ സർവ്വീസുകൾ കുറഞ്ഞതോ ആയ വിമാനത്താവളങ്ങളെ കൂട്ടിയിണക്കി മിതമായ നിരക്കിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ

ഗൊരഖ്പൂർ ലക്നൌ കുർണൂൽ ബംഗളൂരു ക്കുർണൂൽ വിശാഖപട്ടണം കൂർണൂൽ ചെന്നൈ തുടങ്ങിയ പുതിയു മൂട്ടുകളിലാണ് കഴിഞ്ഞ ദിവസം സർവ്വീസ് ആരംഭിച്ചത്

മുംബൈ പൊലീസിലെ മുൻ കമ്മീഷണർ പരംബീർ സിംഗിന്റെ പരാതിയിലാണ് അന്വേഷണം നൂറ് കോടി രൂപ പലരിൽ നിന്നായി പിരിച്ചു നൽകാൻ അനിൽ ദേശ്മുഖ് നിർബന്ധിച്ചതായാണ് പരാതി

ഇന്ത്യൻ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടനയ്ക്കായി പ്രവർത്തിച്ചതിന്റെ പേരിലാണ് എഞ്ചിനീയറിങ് വിദ്യാർത്ഥികളായ സിമി പ്രവർത്തകരെ കോടതി ശിക്ഷിച്ചത്

ഒരാളെ കോടതി വെറുതെ വിട്ടു

ഉഷ്ണ തരംഗത്തെ തുടർന്ന് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത ചൂടാണ് അനുഭവപ്പെട്ടിരുന്നത്

ഇംഗ്ലണ്ടിനെതിരെ നടന്ന ഏകദിന മത്സരത്തിൽ മുൻ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് ഇടതുതോളിൽ പരിക്ക് പറ്റിയതിനെ തുടർന്നാണ് തീരുമാനം വിരാട് കോലി സ്റ്റീവൻ സ്മിത്ത് സൂരേഷ് റൈന അയ്യർ എന്നിവർക്ക് ശേഷം ഐപിഎൽ നായക പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് ഋഷഭ് പന്ത്

അമേരിക്കയിലെ പുരോഗമനപരമായ പട്ടണം എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്ന ന്യൂയോർക്കിന് ഇത് കൂടുതൽ അംഗീകാരമാകും എന്ന് ഗവർണർ ആൻഡ്രോ കുഓമോ അറിയിച്ചു മരിജുവാനയുടെ ഉപയോഗത്തെ തുടർന്ന് വർഷാവർഷം നിരവധി ചെറുപ്പക്കാരാണ് ഇവിടെ അറസ്റ്റിലാകുന്നത്